നിയമങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് മരണം കുറഞ്ഞ് രാജീൃങ്ങളിൽ ഇന്ത്യയും കേരളത്തിൽ ന് ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി

ചൈനീസ് കമ്പനിക്ക് അമേരിക്കയുടെ ഉപരോധം

വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നു

സി ഗോവ മത്സരം സമനിലയിൽ

പരിഷ്കാരങ്ങൾ അവർക്ക് പുതിയ വിപണി അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഉത്തർപ്രദേശിൽ തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണസിയിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക വിപണി പരിഷ്കാരങ്ങളെക്കുറിച്ച് രാജ്യത്ത് തെറ്റായ പ്രചരണമാണ് നടക്കുന്നത് മുൻ സർക്കാരുകൾ വഞ്ചിച്ചത് പരിഷ്കാരങ്ങളെക്കുറിച്ച് കർഷ്കർക്കിടയിൽ ആശങ്ക ഉളവാക്കാനിടയാക്കിയിട്ടുണ്ടെന്നും ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു കർഷകർക്ക് തങ്ങളുടെ ക്യാർഷിക ഉൽപന്നങ്ങൾ വിപണിയിൽ വിൽക്കാൻ അവസ്രം ലഭിക്കേണ്ടതുണ്ട് പഴയ സമ്പ്രദായത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അതിനുള്ള അവസരമുണ്ടെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

കേന്ദ്ര മന്ത്രിമാരുടെ ഉന്നത തല സമിതിയുമായി വൈകുന്നേരം മൂന്ന് മണിക്ക് ഡൽഹി വിജ്ഞാൻ ഭവനിലാണ് ചർച്ചു ആദ്യ ഘട്ട ചർച്ചയിൽ പങ്കെടുത്ത കർഷക നേതാക്കളാണ് ഇന്നും ചർച്ചയിൽ പങ്കെടുക്കുകയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിങ് തോമർ അറിയിച്ചു നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന ബിജെപി നേതാക്കളുമായി നടത്തിയ കൂടിയാലോചനയ്ക്കു ശേഷമാണ് കർഷകരുമായി വീണ്ടും ചർച്ച നടത്താനുള്ള തീരുമാനം ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ ബുരാരി പ്രദേശത്തെ നിരൻകാരി സമാഗം മൈതാനത്തിലേക്ക് മാറണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു

പഞ്ചാബിലെ കർഷകർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അരി ഉയർന്ന വിലയിൽ വിൽക്കാനായി

കർഷകർക്കും വ്യാപാരികൾക്കും ക്ാർഷികോത്പ്പന്നങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നിതിനും സ്വന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഈ ന്യിയമങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു സംസ്ഥാനങ്ങൾക്കുള്ളിലും ഇതര സംസ്ഥാനങ്ങളിലേക്കും തടസ്സം കൂടാതെ വ്യാപാരത്തിൽ ഏർപ്പെടാൻ ഇത് അവസരമൊരുക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സെസോ ലെവിയോ ഈടാക്കില്ല കാർഷികോത്പാദന വിപണന സമിതികൾക്ക് പുറത്ത് അധിക വ്യാപാര അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ നിയമങ്ങളുടെ പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൂനെയിലെ ജിനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഹെദരാബാദദിലെ ബയോളജിക്കൽ ഇ ലിമിറ്റഡ് ഡോ റെഡ്ഡിസ് ലബോറട്ടറീസ് ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഈ കമ്പനികളിലെ ശാസ്ത്രജ്ഞർ നടത്തുന്ന ശ്രമങ്ങളെ ശ്രീ

വാക്സിനുകളെക്കുറിച്ചും അതിന്റെ ഫലപ്രാപ്തി ഉൾപ്പെടെയുള്ള വിവരങ്ങളും ലളിതമായ ഭാഷയിൽ പൊതുജനങ്ങളെ അറിയിക്കാൻ പ്രത്യേകം ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി കമ്പനികൾക്ക് നിർദ്ദേശം നൽകി

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗം സംയുക്ത പ്രസ്താവനയോടു കൂടിയാണ് സമാപിച്ചത്

ഒ യോഗം ചേരുന്നതെന്ന് വിദേശകാരൃ വക്താവ് പ്പികാസ് സ്വരൂപ് അറിയിച്ചു

വെനസ്വേലയിൽ ജനാധിപത്യത്തെ ദുർബ്ബലപ്പെടുത്താനുള്ള പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ചാണ് അമേരിക്ക ചൈനീസ് കമ്പനിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ചൈനീസ് കമ്പനിയായ സി

സി വെനസേലയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ സേവന ദാതാക്കൾക്ക് സൈബർ പിന്തുണ നൽക്കുകിയും വിദഗ്ദ്ധരുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്ന്ത്യ്യി് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയ്യോ ആരോപിച്ചു വാർത്താ മാധ്യമങ്ങളെയും പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രസംഗങ്ങളേയും പ്രസ്താവ്ന്റ്ക്ളേയും വെനസ്വേലയിൽ തടയുന്നതായും അദ്ദേഹൃ പുറിഞ്ഞു

ഒരു റിപ്പോർട്ട്

നാളെ വൈകുന്നേരത്തോടെ ശ്രീലങ്കൻ തീരം കടക്കുന്ന ചുഴലിക്കാറ്റ് വ്യാഴാഴ്ചയോടെ കന്യാകുമാരി മേഖലയിലേക്ക് നീങ്ങും ഇതേതുടർന്ന് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി രാമനാഥപുരം ശിവഗംഗ ജില്ലകളിൽ കനത്ത മഴ പെയ്തേക്കാം മീൻപിടുത്തത്തിലേർപ്പെട്ടിരിക്കുന്നവർ തീരത്തേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറി തെക്കൻ തമിഴ്നാട് തീരത്ത് കരയിൽ പ്രവേശിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും ഇടുക്കിയിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

മലയ്ക്ടോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജനങ്ങൾ ജാഗ്രത്യപാട്ലിക്കണം

ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ടും നാളെയും നാലാം തീയതിയും ഓറഞ്ച് അലർട്ടും മൂന്നാം തീയതി റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

വൈകുന്നേരം അഞ്ചുമണി വരെയാണ് വോട്ടെടുപ്പ്

കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്

എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരുടീമുകളും ഓരോ ഗോൾ വീതം നേടി മൂന്ന് കളികളിൽ നിന്ന് അഞ്ച് പോയിന്റ് നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നിലവിൽ രണ്ടാം സ്ഥാനത്താണ്

അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോ

മുൻ ചീഫ് സെക്രട്ടറി എസ്

രംഗനാഥിന്റെ അദ്ധ്യക്ഷതയിലുള്ള കർമ്മ സമിതിയാണ് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്

വി വൈറസിനെക്കുറിച്ചും എയ്ഡ്സ് രോഗത്തെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ ഒന്ന് രാജ്യാന്തര തലത്തിൽ എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു